സൂപ്രീംകോടതി ഒമ്പതംഗ ബഞ്ച് മൂന്നാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും

ലഡാക്കിൽ കനത്ത മഞ്ഞുവീഴ്ച

ചീഫ് ജസ്റ്റിസ് എസ്

ബോബ്ഡേയുടെ അധ്യക്ഷതയിലുളള ഒൻപതംഗ ബഞ്ചാണ് ശബരിമല വിഷയം പരിഗണിക്കുന്നത് പുനപരിശോധന ഹർജികളല്ല പരിശോധിക്കുന്നതെന്നും അഞ്ചംഗ ബഞ്ച് നിർദ്ദേശിച്ച വിഷയങ്ങളാണ് ഭരണഘടനാബഞ്ചിന്റെ മുന്നിലുളളതെന്നും വാദം ആരംഭിച്ചപ്പോൾ കോടതി വ്യക്തമാക്കി ശബരിമല യുവതീപ്രവേശന ഉത്തരവിന് എതിരായ പുനപരിശോധനാഹർജികൾ പരിഗണിച്ച അന്നത്തെ ചീഫ് ജസ്റ്റിസ് രജ്ഞൻ ഗോഗോയ് ഉൾപ്പെട്ട അഞ്ചംഗ ഭരണഘടനാ ബഞ്ചാണ് വിഷയം വിശാല ഭരണഘടനാബഞ്ചിന്റെ പരിഗണനയക്ക് വിട്ടത്

കൂടുതൽ വിവരങ്ങളുമായി ദീപു എസ്

വോയ്സ് പശ്ചിമേഷ്യയിൽ സംഘർഷം ലഘൂകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും ചർച്ച നടത്തി ഇതിനായി ഒരുമിച്ചു പ്രവർത്തിക്കാനും സംയമനം പാലിക്കാൻ ബന്ധപ്പെട്ട രാജ്യങ്ങളോട് അഭ്യർത്ഥിക്കാനും തീരുമാനമായി കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഷാന്റില്ലി സന്ദർശനത്തിൽ തീരുമാനിച്ച കാര്യങ്ങളുടെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി

കശ്മീരിലെ നിലവിലെ സ്ഥിതിഗതികൾ ഇരുവരും വിലയിരുത്തി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ന്യൂഡൽഹിയിൽ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട സ്ഥാപ്പുങ്ങളുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്

ഓരോവർഷവും ഏകദേശം നാലര ലക്ഷം റോഡപകടങ്ങളിലായി ഒന്നരലക്ഷം പേർക്കാണ് ജീവൻ നഷ്ടമാകുന്നതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിൽ ഇതു മൂലം രണ്ടു ശതമാനം കുറവുണ്ടാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച സംസ്ഥാനത്തിനുള്ള അവാർഡ് പ്രതിരോധമന്ത്രി തമിഴ്നാടിന് സമ്മാനിച്ചു

ടീച്ചേഴ്സ് അസോസിയേഷനിലെ രംഗങ്ങൾ നിസ്സഹകരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അഭ്യർത്ഥന ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് സർവ്വകലാശാലയെ മടക്കിക്കൊണ്ടുവരുന്നതിന് നടത്തുന്ന ശ്രമങ്ങൾക്ക് തടസ്സമാണെന്ന് സർവകലാശാല വ്യക്തമാക്കി

വ്വിൽ ന്ടന്ന അക്രമങ്ങളുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങളും വ്യാട്ട്സാപ്പ് സന്ദേശങ്ങളും മറ്റ് സാമൂഹ്യ മാധ്യമ വിവരങ്ങളും സ്ക്കർക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി പ്രോലിസിനോടും ഡൽഹി ഗവൺമെന്റിനോടും പ്രതികരണം ആരാഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങളുൾപ്പെടെയുള്ള വിവരങ്ങൾ സൂക്ഷിക്കണമെന്ന് ജെ

അഡ്മിനിസ്ട്രേഷനോട് ആവശൃപ്പെട്ടിട്ടുണ്ടെന്ന് ഡൽഹി പോലീസ് കോടതിയെ അറിയിച്ചു കൂടുതൽ വാദം കേൾക്കാനായി കേസ് നാളത്തേക്ക് മാറ്റി

ആറുകൾ രജിസ്റ്റർ ചെയ്തതായി ഡൽഹി തെരഞ്ഞെടുപ്പ് നോഡൽ ഓഫീസർ മാധ്യമങ്ങളെ അറിയിച്ചു

പാർട്ടി ദേശീയ അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും മന്ത്രിസഭാ വികസനം ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ

ടിക്കറ്റിൽ വിജയിച്ച കോൺഗ്രസ് ജെ ഡി എസ് വിമത എം

മാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്നും ശ്രീ യെദ്യൂരപ്പ റായ്ചൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

പദ്ധതിയെക്കുറിച്ച് ഒരു റിപ്പോർട്ട്

പ്രകൃതി ദുരന്തങ്ങളെ തുടർന്ന് വിളനാശം നേരിട്ട കർഷകർക്കുള്ള സമഗ്ര ഇൻഷറൻസ് പദ്ധതിയായ ഇത് കർഷകരുടെ വരുമാന നഷ്ടം പരിഹരിക്കാൻ സഹായകരമാണ് ഖാരിഫ് വിളകൾക്കായി ഇൻഷാൻസ് പ്രീമിയം തുകയുടെ രണ്ട് ശതമാനവും റാബി വിളകൾക്കായി പ്രീമിയം തുകയുടെ ഒന്നര ശതമാനവുമാണ് കർഷകർ അടയ്ക്കേണ്ടത് ബാക്കിയുള്ള പ്രീമിയം തുക ഗവൺമെന്റ് വഹിക്കുന്നതിനാൽ താരതമ്യേന കുറഞ്ഞ തുക മാത്രമാണ് കർഷകർക്ക് അടയ്ക്കേണ്ടതായി വരുന്നത് മുൻ കാലങ്ങളിൽ നടപ്പാക്കിയ ഇൻഷറൻസ് പദ്ധതികൾക്ക് ഉണ്ടായിരുന്ന എല്ലാ പോരായ്മകളും പരിഹരിക്കുന്ന വിധത്തിലുള്ളതാണ് പ്രധാൻമന്ത്രി ഫസൽ ബീമാ യോജന

ഇന്നലെ രാത്രി മുതൽ കാർഗിൽ ജില്ലയിൽ മുഴുവനായും ലേയിലും ലഡാക്കിലും ഭാഗികമായും മഞ്ഞുവീഴ്ച തുടരുകയാണ് വാഹനങ്ങൾ റോഡിലിറങ്ങിയില്ല ലേ കാർഗിൽ പാതയിൽ ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്

ശ്രീനഗറിലും ക്യാശ്മീരിന്റെ മറ്റ് ഭാഗങ്ങളിലും ജനജീവിതത്തെ ഇത് ബാധിച്ചിട്ടുണ്ട് ഉള്തരാഖണ്ഡിലും മഞ്ഞുവീഴ്ച ജനജീവിതത്തെ ബാധിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുശോചന സന്ദേശം ശ്രീ നഖ്വി സുൽത്താൻ സയ്ദ് ഹൈതം ബിൻ താരിഖ് ബിൻ തൈമൂർ അൽ സയ്ദിന് കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു സുൽത്താനോടുള്ള ആദര സൂചകമായി കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് ഒരു ദിവസത്തെ ദുഃഖാചരണം നടത്തുകയും ദേശീയ പതാക പകുതി താഴ്ത്തി കെട്ടുകയും ചെയ്തു

രജിസ്റ്റർ ചെയ്യാത്തവർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമവും എയർ ക്രാഫ്റ്റ് നിയമവും അനുസരിച്ച് കേസെടുക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആന്റ് ഇൻഡസ്ട്രിയുടെ കഴിഞ്ഞവർഷത്തെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ അനധികൃത ഡ്രോണുകൾ ഏകദേശം അൻപതിനായിരത്തിനും അറുപതിനായിരത്തിനും ഇടയിലാണ്

വിശാലമായ ഗൂഢാലോചനയിലെ ഒരു കണ്ണി മാത്രമാണ് ദേവീന്ദർ സിങ്ങെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല ആരോപിച്ചു കുൽഗാം ജില്ലയിലെ മിർബാസാറിൽ ഹിസ്ബുൾ ഭീകരരോടൊപ്പം സഞ്ചരിക്കുമ്പോഴാണ് കഴിഞ്ഞ ശനിയാഴ്ച ഡി

ദേവീന്ദർ സിംഗ് അറസ്റ്റിലായത്

ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഉത്തരാഖണ്ഡിന്റെ അനൂപ് കുമാർ മാഹിമിനാണ് സ്വർണം

ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കും

മത്സരത്തിന്റെ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള തത്സമയ വിവരണം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ആകാശവാണി പ്രക്ഷേപണം ചെയ്യും